ഇ

കോഴിക്കോട് കൂടത്തായി കേസിൽ അന്വേഷണ സംഘം ഇന്നലെ രാത്രി മുഖ്യപ്രതി ജോളിയെ പൊന്നാമറ്റം വീട്ടി ലെത്തിച്ച് വീണ്ടും തെളിവെടുത്തു

ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും

ചെറുകിട ഇടത്തര നാമ മാത്ര വ്യാപാരികൾക്കും സംരംഭകർക്കുമാണ് വായ്പ അനുവദിച്ചത്

ഈ വർഷം അവസാനത്തോടെ ബി ജെ പിക്ക് പുതിയ ദേശീയ അധ്യക്ഷൻ ഉണ്ടാകുമെന്ന് പാർട്ടി അധ്യക്ഷൻ അമിത്ഷാ അറിയിച്ചു

എക്കാലവും പാർട്ടിയിലെ അതിശക്തി ശാലിയായി താൻ ഉണ്ടാകുമെന്നും പാർട്ടിയെ പിൻവാതിൽ വഴി നിയന്ത്രിക്കുമെന്നും മറ്റും ഉയരുന്ന പ്രചാരണം അടിസ്ഥാനം രഹിതമാണെന്ന് അമിത്ഷാ ഇന്ത്യാ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞു പിന്നിൽ നിന്ന് നിയന്ത്രിക്കാൻ ബി ജെ പി കോൺഗ്രസ് പാർട്ടിയല്ലെന്നും അമിത്ഷാ വൃക്തമാക്കി പാർട്ടി വർക്കിങ് പ്രസിഡന്റായ ജെ പി നദ്ദ അധ്യക്ഷ സ്ഥാന ത്തേക്ക് വന്നേക്കുമെന്നാണ് സൂചന മേഖലാ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ആർ

പിയിൽ ഒപ്പിടുന്നതിൽ നിന്ന് കേന്ദ്ര ഗവൺമെന്റ് പിൻമാ റണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെ ട്ടു രാജ്യത്തിന്റെയും ജനങ്ങളുടെയും താൽപര്യങ്ങൾക്ക് വിരുദ്ധമാണ് കരാർ വൃവസ്ഥകളെന്ന് അദ്ദേഹം വിലയി രുത്തി കാർഷിക വ്യാവസായിക മേഖലകളെ തകർക്കുന്ന നിർദേശങ്ങൾ കരാറിലുണ്ടെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞു സംസ്ഥാനത്തെ അഞ്ച് നിയമസഭാ മണ്ഡലങ്ങളിലെ ഉപ തെരഞ്ഞെടുപ്പ് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾക്ക് താക്കീതാകണമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം എ കെ ആന്റണി കാസർകോട്ട് പറഞ്ഞു ഇരു ഗവൺമെൻ്റുകളും ജനവിരുദ്ധ നയങ്ങളാണ് നടപ്പിലാ ക്കുന്നത് രാജ്യത്തെ കർഷകർ ആത്മഹത്യാ മുനമ്പിലാ ണെന്നും രാജ്യത്തിന്റെ സാമ്പത്തികനില തകർന്നടി ഞ്ഞെന്നും ആന്റണി കാസർകോട് മീറ്റ് ദ പ്രസിൽ പറ ഞ്ഞു ശബരിമല വിഷയത്തിൽ സിപിഐഎമ്മിനും ബി

പിക്കും വ്യക്തത ഇല്ലെന്ന് കെ

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അരൂരിൽ കുറ്റപ്പെടുത്തി പുന്നപ്ര വയലാർ സമരത്തിൽ കർഷകർേയും സാധാരണക്കാരേയും വഞ്ചിച്ച ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കെന്നും അദ്ദേഹം പറഞ്ഞു കൂടത്തായി കൊലപാതകത്തിൽ പ്രതികൾ ആരായാലും നിയ മത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും ഇത് തെരഞ്ഞെ ടുപ്പ് ആയുധമാക്കാനാണ് എൽ ഡി എഫ് ശ്രമിക്കുന്ന തെന്നും മുല്ലപ്പള്ളി ആരോപിച്ചു മഞ്ചേശ്വരത്ത് കോൺഗ്രസ് ബി

പിയുടെ ബി ടീമായി അധ പതിച്ചതായി മന്ത്രി എ സി മൊയ്തീൻ കുറ്റപ്പെടു ത്തി ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ കോൺഗ്ര സിന് സമയമില്ലെന്നും ബി ജെ

ശബരിമല വിഷയത്തിൽ രാഹുൽഗാന്ധി നിലപാട് വൃക്ത മാക്കണമെന്ന് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് അരൂരിൽ ആവശ്യപ്പെട്ടു പൊളിറ്റിക്കൽ കാർഡ് മാറ്റി കമ്മ്യൂണൽ കാർഡിറക്കി തെരഞ്ഞെടു പ്പിനെ നേരിടാനാണ് സിപിഐഎം ശ്രമിക്കുന്നതെന്നും രമേശ് ആരോപിച്ചു കോഴിക്കോട് കൂടത്തായി കേസിൽ പ്രതികളുടെ കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ അന്വേഷണ സംഘം ഇന്നലെ രാത്രി മുഖ്യപ്രതി ജോളിയെ വീണ്ടും പൊന്നാമറ്റം തറവാട് വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നട ത്തി

ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ സാങ്കേതിക സംഘവും ഇന്നലെ പൊന്നാമറ്റം വീട്ടിലെത്തിയിരുന്നു പരിശോധനകൾ ഇന്നും തുടരും അതിനിടെ ജോളിയുമായി ബന്ധമുണ്ടെന്ന് സംശയിക്കുന്ന ഓമശ്ശേരിയിലെ മുസ്ലിം ലീഗ് പ്രാദേശിക നേതാവ് വി കെ ഇമ്പിച്ചിമോയിയെ ലീഗ് സംസ്ഥാന കമ്മിറ്റി പുറ ത്താക്കി

ബാലകൃഷ്ണൻ നായർ അറിയിച്ചു ഫ്ളാറ്റ് നിർമ്മാ താക്കളും ഉടമകളും ആദ്യവിൽപനയിൽ രജിസ്ടർ ചെയ്ത ആധാരവില മാനദണ്ഡമാക്കിയായിരിക്കും തുക തീരുമാനിക്കുന്നത്

സമിതിയുടെ അടുത്ത സിറ്റിങ് മറ്റന്നാൾ നടക്കും ചരക്കു സേവന നികുതി വരുമാനം വർധിപ്പിക്കുന്നതിന്റെ സാധ്യതകൾ പഠിക്കാൻ കേന്ദ്രം നിയോഗിച്ച ഉന്നതതല സമിതിയുടെ ആദ്യ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും

ടി വരുമാനം കുറയാനിട്ടയായ സാഹചര്യം പരി ശോധിച്ച് തിരുത്തൽ നടപട്ടികൾ നിർദേശിക്കാനാണ് സമിതി രൂപീകരിച്ചത്

ബുക്കർ പ്രൈസ് നേടുന്ന ആദ്യ കറുത്ത വർഗക്കാ രിയാണ് എവാരിസ്റ്റോ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ബംഗ്ലാദേശിനെ നേരിടും കൊൽക്കത്ത സാൾട്ട്ലേക്ക് സ്റ്റേഡിയത്തിൽ രാത്രി ഏഴരയ്ക്ക് കളി ആരംഭിക്കും ആദ്യ കളിയിൽ ഒമാനോട് തോറ്റ ഇന്ത്യ രണ്ടാം കളി യിൽ ഖത്തറുമായി സമനില പാലിക്കുകയായിരുന്നു

വഡോദരയിലെ മൂന്നാം മത്സ രത്തിൽ ആറ് റൺസിനാണ് ഇന്ത്യയുടെ ജയം ബംഗുളൂരിവിൽ വിജയ് ഹസാരെ ക്രിക്കറ്റിൽ കേരളത്തിന് തോൽവി മുംബൈ എട്ട് വിക്കറ്റിനാണ് കേരളത്തെ തോൽപിച്ചത് ഗവൺമെന്റിന്റെ ക്ഷേമ പദ്ധതികൾ ജനങ്ങളിൽ എത്താതി രിക്കാൻ ചില ്രമാധ്യമങ്ങൾ ശ്രമിക്കുന്നുണ്ടെന്ന് മന്ത്രി എ

സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവർക്കായി വീടും തൊഴിലും വിദ്യാ ഭ്യാസവും ക്ഷേമ പെൻഷനുകളും ഉറപ്പാക്കാൻ ഗവൺമെന്റിന് കഴിഞ്ഞിട്ടുണ്ട് പട്ടികജാതി വികസന വകുപ്പിന്റെ സാമൂഹ്യ ഐക്യദാർഢ്യ പക്ഷാചരണ ജില്ലാ തല സെമിനാറും പൊതു സമ്മേളനവും പാലക്കാട് ശ്രീകൃ ഷ്ണപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി പട്ടികജാതി വിദ്യാർഥികൾക്കായി നിർമ്മിച്ച പഠന മുറിക ളുടെ താക്കോൽ ചടങ്ങിൽ മന്ത്രി കൈമാറി ശ്രീകൃഷ്ണ പുരം ഗവ എഞ്ചിനിയറിങ്ങ് കോളജിന്റെ സ്റ്റാഫ് കാർട്ടേഴ്സിനും ഇലക്ട്രിക്കൽ എഞ്ചിനിയറിങ്ങ് ബ്ലോക്കി നും മന്ത്രി മറ്റൊരു ചടങ്ങിൽ തറക്കല്ലിട്ടു പട്ടയ ഭൂമിയിൽ വെച്ചുപിടിപ്പിച്ച മരങ്ങൾ മുറിക്കാൻ ഉടമ കൾക്ക് അവകാശം നൽകുന്ന വിജ്ഞാപനത്തിന് നടപ ടിയെടുത്ത് വരികയാണെന്ന് മന്ത്രി കെ

ഇക്കാര്യത്തിൽ വനം റവന്യൂ വകുപ്പുകൾ ചർച്ച നടത്തി അനുകൂല തീരുമാനം എടുത്തിട്ടുണ്ട് ഇടുക്കി ജില്ലാ വനം അദാലത്ത് കലക്ട്രേറ്റ് ഹാളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി ഇടുക്കിയിലെ ഭൂ വിനിയോഗ ഉത്തരവിലും കെട്ടിട നിർമ്മാണ നിയന്ത്രണ ഉത്തരവിലും മാറ്റം വരുത്തുമെന്ന് മുഖ്യമന്ത്രി ഉറപ്പു നൽകിയതായി ജില്ലാ എൽ

എഫ് കൺവീനർ കെ കെ ശിവരാമനും സി

എം ജില്ലാ സെക്രട്ടറി കെ

മുഖ്യമന്ത്രി റവന്യൂമ ന്ത്രി എന്നിവരുമായി ഈ വിഷയം ചർച്ച ചെയ്തതതായും നേതാക്കൾ പറഞ്ഞു ഇന്ന് അന്താരാഷ്ട്ര വൈറ്റ് കെയിൻ ദിനം കേരള ഫെഡറേ ഷൻ ഓഫ് ദി ബ്ലൈന്റിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന പരിപാടികൾ തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ മുൻ ഡി ജി പി ടി പി സെൻകുമാർ ഉദ്ഘാടനം ചെയ്യും

കോഴിക്കോട് മൂഴിക്കൽ പൂക്കാട്ട്കുഴി കടവിൽ കുളിക്കുന്ന തിനിടെ കാണാതായ രണ്ട് വിദ്യാർഥികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി ബത്തേരി അമ്പലവയൽ സ്വദേ ശിയും ഒപ്ടോമെട്രി വിദ്യാർഥിയുമായ ആൽവിൻ ജോസ ഫിന്റെ മൃതദേഹമാണ് കണ്ടെടുത്തത് കാണാതായ വയ നാട് സ്വദേശി അമറിനായി തെരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താനായില്ല ആൽവിൻ ഉൾപ്പെടെ ആറ് വിദ്യാർഥി കളാണ് പുഴയിൽ കുളിക്കാനിറങ്ങിയത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സംഘടിപ്പിക്കുന്ന ആദിവാസി സമ്മേളനം രാവിലെ സുൽത്താൻ ബത്തേരി ടൌൺഹാളിൽ കമ്മീഷൻ അധ്യക്ഷൻ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ഉദ്ഘാടനം ചെയ്യും ആദിവാസി വിഭാഗ ങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ നേരിട്ട് മനസിലാക്കാനും ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യ ത്തിൽ പരിഹരിക്കാനും ലക്ഷ്യമിട്ടാണ് സമ്മേളനം

ആദിവാസികളുടെ പരാതികൾ നേരിൽ കേട്ട് പരിഹാരം നിർദേശിക്കാനാണ് കമ്മീഷന്റെ തീരുമാനം

വയനാട് ജില്ലയിലെ ശിൽപശാല ടൌൺഹാളിൽ രാവിലെ തുടങ്ങും ഫീൽഡ് ഓട്ട്റീച്ച് ബ്യൂറോയും ഐ സി ഡി എസും ചേർന്നാണ് പരിപാടി നടത്തുന്നത് കാൻസർ ബോധവത്കരണ പ്രക്ഷേപണ പ്രമ്പരയുടെ ഭാഗ മായി ആകാശവാണി കണ്ണൂർ നില്യവും മലബാർ കാൻസർ കെയർ സൊസൈറ്റിയും ചേർന്ന് കണ്ണൂർ ജില്ല യിലെ കോളജുകളിൽ സംഘടിപ്പിക്കുന്ന പ്രശ്നോത്തരി മത്സരം ആരംഭിച്ചു രാവിലെ എസ് എൻ കോളജിലും ഉച്ചകഴിഞ്ഞ് കൃഷ്ണമേനോൻ സ്മാരക വനിതാ കോള ജിലും മത്സരം നടത്തും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രൂപീകരണത്തിന്റെ നൂറാം വാർഷികം ഒരു വർഷം നീളുന്ന പരിപാടികളോടെ ആഘോഷിക്കും

വി ജയരാജൻ അറിയി ച്ചു

സംസ്ഥാന കമ്മറ്റി അംഗവും കണ്ണൂർ അഴീക്കോട് മണ്ഡലം പ്രസിഡന്റുമായ കണ്ണൂർ കക്കാ ട്ടെ പി

മുത്തലീബ് നിര്യാതനായി

ഖബറടക്കം ഇന്ന് രാവിലെ കക്കാട് ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടക്കും കോഴിക്കോട് കോടഞ്ചേരി മീൻമുട്ടിക്കവലയിൽ ബസും ബൈക്കും കൂട്ടിയിടിച്ച് ചികിത്സയിലായിരുന്ന വിദ്യാർഥി മരിച്ചു വെള്ളിമാട്കുന്ന് ജെ ഡി ടി പോളിടെക്നിക് വിദ്യാർഥി കോടഞ്ചേരി നെല്ലിപ്പൊയിൽ ഷോമർജെ യിംസാണ് മരിച്ചത് ഞായറാഴ്ചയായിരുന്നു അപകടം തിരൂരിലെ ഏഴൂർ ഹയർ സെക്കൻഡറി സ്കൂൾ കലോത്സവ ത്തിനിടെ പൂർവ്വ വിദ്യാർഥികളും സ്കൂൾ വിദ്യാർഥികളും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ നിരവധി പേർക്ക് പരിക്കേ റ്റു